കോവിഡ് രണ്ടാം തരംഗം കൂടുതൽ അപകടകാരിയാണെന്ന് മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമന്ത്രി

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കോവിഡ് സ്ഥിരീകരിച്ചു

എൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം

കോവിഡ് കേസുകൾ വർധിക്കുന്നത് കാര്യക്ഷമമായി തടയാൻ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ കോവിഡിനെ തിരായ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണം രാജ്യത്ത് കോവിഡ് വ്യാപനം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി സ്ഥിതി വിലയിരുത്തുകയായിരുന്നു പ്രധാനമന്ത്രി

വിശദവിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് രുര കോവിഡ് രണ്ടാം തരംഗം കൂടുതൽ അപകടകാരിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതേറെ പേടിപെടുത്തുന്നതും എല്ലാവരിലും ആശങ്കയുണ്ടാക്കുന്നതുമാണ്

ഒന്നാം തരംഗത്തേക്കാൾ വളരെ വേഗത്തിലാണ് കോവിഡ് രണ്ടാം തരംഗത്തിന്റെ വളർച്ച ചില സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ സാഹചര്യത്തിന്റെ ഗൌരവം കൈവെടിയുന്നതിൽ പ്രധാനമന്ത്രി നിരാശ പ്രകടിപ്പിച്ചു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് മുന്നിലെന്നും പരിശോധന പിന്തുടരൽ ചികിത്സ എന്നിവയിൽ സംസ്ഥാനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വെല്ലുവിളികൾ ക്കപ്പുറം രാജ്യത്തിന് മികച്ച അനുഭവസമ്പത്തും വാക്സിൻ ലഭ്യതയുമുണ്ട് സമ്പർക്ക ഉറവിടം കണ്ടെത്തുന്നതിലും ആരോഗ്യമ ന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ പിന്തുടരുന്നതിലും സംസ്ഥാനങ്ങൾ കൂടുതൽ ശ്രദ്ധപതിപ്പിക്കണം

രംഭ കോവിഡ് സ്ഥിരീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ചികിത്സക്കായി ഇന്നലെ രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു

ദിവസങ്ങളിൽ അടുത്ത താനുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പോകണമെന്നും പരിശോധന നടത്തണമെന്നും പിണറായി ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

രോഗ ലക്ഷണങ്ങളുണ്ടായിരുന്നതിനാൽ അദ്ദേഹം രണ്ടു ദിവസമായി തിരുവനന്തപുരത്തെ വീട്ടിൽ നിരീക്ഷണത്തി ലായിരുന്നു ഉമ്മൻചാണ്ടിയെ രാത്രി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി രുമ സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വർധിക്കുന്നു

രും കോഴിക്കോട്ജില്ലയിൽ കോവിഡ് പ്രതിദിന കണക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു പറഞ്ഞു

പൊതുസ്ഥലങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ കർശനമായി നടപ്പാക്കും

എല്ലാ തരം ചടങ്ങുകളും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും കലക്ടർ പറഞ്ഞു

രുര തൃശൂർ ജില്ലയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ നടപടി ജില്ലാഭരണകൂടം ഊർജ്ജിതമാക്കി ജില്ലാ കലക്ടർ എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം പഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലും വാർഡ് തല മൊബൈൽ രജിസ്ട്രേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കാനും ധാരണയായി രുര നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ രണ്ടാഴ്ചത്തെ പ്രത്യേക കോവിഡ് പരിശോധന സൌകര്യം ഇന്നു മുതൽ ഏർപ്പെടുത്തും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ സ്ഥാനാർഥികൾ പോളിംഗ് ഏജന്റുമാർ പൊലീസ് റവന്യൂ ബാങ്ക് ജീവനക്കാർ പ്രചാരണത്തിൽ ഏർപ്പെട്ടവർ പോസ്റ്റൽ ബാലറ്റ് ഡ്യൂട്ടി ചെയ്തവർ ആശ അങ്കണവാടി പ്രവർത്തകർ തുടങ്ങി തിരഞ്ഞെടുപ്പു പ്രവർത്തനങ്ങളിലേർപ്പെട്ട എല്ലാവർക്കും നിർബന്ധിത കോവിഡ് പരിശോധന നടത്തും

വാക്സിനേഷൻ കൂട്ടുന്നതിനായി ഇ

ഐ ഡിസ്പെൻസറികളിലും ക്യാമ്പ് ആരംഭിക്കുമെന്ന് ഡി

ഒ പറഞ്ഞു രംഭ ഛത്തീസ്ഗഡിൽ ബസ്തർ വന മേഖലയിൽ ശനിയാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയ ജവാനെ മോചിപ്പിച്ചു

ആഭ്യന്തര മന്ത്രി അമിത് ഷാ അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു

അഞ്ചുവർഷത്തിനിടെ രണ്ട് തവണ ദേശീയ പുരസ്കാരവും തുടർച്ചയായി മൂന്ന് തവണ സ്വരാജ് ട്രോഫി സംസ്ഥാന പുരസ്കാരവും നേടിയ തിരുവനന്തപുരം ജില്ലാപഞ്ചായത്ത് ഗിന്നസ് റെക്കോഡിൽ ഇടം നേടിയ ആദ്യ തദ്ദേശ ഭരണ സ്ഥാപനമാണ് ആരോഗ്യ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കിയ ജനക്ഷേമപദ്ധതികളാണ് ജില്ലാപഞ്ചായത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്

എൽ ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ചെന്നൈയിൽ ഇന്ന് തുടക്കം

മുംബൈ ചെന്നൈബംഗളൂരു അഹമ്മദാബാദ് കൊൽക്കത്ത ഡൽഹി എന്നിവിടങ്ങളിലായാണ് മറ്റ് മത്സരങ്ങൾ നടക്കുന്നത്

രംഭ കണ്ണൂർ പാനൂരിനടുത്ത് മുക്കിലെ പീടികയിൽ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പുല്ലൂക്കരയിലെ ഷിനോസിനെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു

കേസന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മിഷണർ കെ

ഇളങ്കോ പറഞ്ഞു ദേഴ സംസ്ഥാനത്ത് വൊക്കേഷണൽ ഹയർ സെക്കണ്ടറി രണ്ടാം വർഷ പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും

രും ഇടുക്കി ജില്ലയിൽ എസ്

പരീക്ഷയുടെ കുറ്റമറ്റ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ വാർ റൂം പ്രവർത്തനം തുടങ്ങി പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർക്കുണ്ടാ കുന്ന സംശയങ്ങൾ പരാതികൾ എന്നിവ സ്വീകരിച്ച് ഉടനടി പരിഹരിക്കുന്നതിനായാണ് ജില്ലാ തലത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വാർ റൂം രൂപീകരിച്ചത്

പ്രേമചന്ദ്രൻ എം

കെ പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു രംഭ കോഴിക്കോട് പന്തീരാങ്കാവ് ബൈപ്പാസിൽ ഇന്നലെ വൈകീട്ടുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായി രുന്ന സ്ത്രീ മരിച്ചു സംസ്ഥാന ചീഫ് സെക്രട്ടറി വി പി ജോയിയുടെ സഹോദരി രാമനാട്ടുകര സ്വദേശി സെലിൻ വി പീറ്ററാണ് മരിച്ചത് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രും കാഞ്ഞങ്ങാട്ട് ബല്ലാ കടപ്പുറത്ത് കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കുന്നതിനിടയിൽ പതിനാലുകാരനെ തിരമാലയിൽപ്പെട്ട് കാണാതായി

ഇന്നലെ രാത്രി വൈകും വരെ നാട്ടുകാരും അഗ്നിശമനസേനാ അംഗങ്ങളും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല

രും കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ യുഡിഎഫ് പ്രവർത്തകരെ അക്രമിച്ച സംഭവത്തിലുൾപ്പട്ടവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് എം കെ രാഘവൻ എം പി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു രും സംസ്ഥാനത്ത് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കു സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത അഞ്ചു ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്

തിങ്കളാഴ്ച ഇടുക്കി എറണാകുളം വയനാട് ജില്ലകളിൽ യെല്ലോ അലെർട് പ്രഖ്യാപിച്ചു

അഡ്മിറ്റ് കാർഡ് ലഭിച്ച ഉദ്യോഗാർഥികൾ പുലർച്ചെ അഞ്ചിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു